തോമസ് കോഴിക്കോട് മെഡിക്കൽ കോളജിലെ ത്രിതല കാൻസർ സെന്ററും കൂടുംബശ്രീയുടെ ആദ്യ വനിതാ ഷോപ്പിങ്ങ് മാളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ബിജെപി നേതാവ് കെ സൂരേന്ദ്രനെതിരായ പൊലീസ് നടപടി യിൽ പ്രതിഷേധിച്ച് നാളെ ബിജെപി മുഖ്യമന്ത്രിയുടെ വസതി യിലേക്ക് മാർച്ച് നടത്തും

സു ധാകരൻ ശബരിമലയിലേക്ക് തീർത്ഥാടകർ കൂടുതലായി എത്തിത്തുടങ്ങി

ലോക വനിതാ ബോക്സിങ്ങ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ന്

തോമസ് തിരുവ നന്തപുരത്ത് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ സൌകരൃം അനുസരിച്ച് അദ്ദേഹത്തെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകുമെന്ന് അദ്ദേഹം പറ ഞ്ഞു ഇത് രണ്ടാം തവണയാണ് മാത്യു

തോമസിന് മന്ത്രിസ്ഥാ നത്ത് കാലാവധി പൂർത്തിയാക്കാതെ മാറേണ്ടി വരുന്നത് ഇതിൽ നിരാ ശയുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രിസ്ഥാനം ഒഴി യണമെന്ന് പാർട്ടി ദേശീയ പ്രസിഡന്റ് നേരത്തെ ആവശ്യപ്പെട്ടു പോലുമില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി

തോമസിന് പകരം കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാ ക്കാൻ ഇന്നലെ ബെങ്കലൂരുവിൽ ദേശീയ പ്രസിഡന്റ് എച്

ദേവ ഗൌഡയുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനം എടുത്ത തായി പാർട്ടി ജനറൽ സെക്രട്ടറി ഡാനിഷ് അലിയാണ് അറിയിച്ചത്

കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാ ക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു കൂട്ടുകക്ഷി മന്ത്രിസ ഭയിൽ മന്ത്രിമാരെ തീരുമാനിക്കാൻ അതാത് പാർട്ടികൾക്കാണ് അധി കാരമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താലേഖകരെ അറി യിച്ചു ചിറ്റൂർ എംഎൽഎ കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കണമെന്നാ വശ്യപ്പെട്ട് ജനതാദൾ എസ് സംസ്ഥാന നേതൃത്വം ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയേക്കും

കോഴിക്കോട് മെഡിക്കൽകോളജിലെ ത്രിതല കാൻസർ സെന്ററും ലെക്ചർ തിയറ്റർ കോംപ്ലക്സും ഇന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ ഓങ്കോളജി സർജി ക്കൽ ഓങ്കോളജി റേഡിയോ തെറാപ്പി വിഭാഗങ്ങൾ ഒരേ സമുച്ചയ ത്തിൽ ഒരുക്കിയാണ് ത്രിതല കാൻസർ സെന്റർ നിർമ്മിച്ചിരിക്കുന്ന ത്

നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വർണമെഡൽ സമ്മാനിക്കും

സ്ത്രീകൾ നിയന്ത്രിക്കുന്നതും വനിതകൾ മാത്രം ജോലി ചെയ്യുന്നതുമായ രാജ്യത്തെ ആദ്യ സ്ത്രീ സൌഹൃദ ഷോപ്പിങ്ങ് സമുച്ചയമാണ് കോഴി ക്കോട്ടെ മഹിളാ മാൾ

കാസർകോട് ഉക്കിനടുക്കയിൽ ആരംഭിക്കുന്ന മെഡിക്കൽ കോള ജിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തറക്കല്ലിടും

ഭരണ നിർവ ഹണ വിഭാഗം കെട്ടിടം പൂർത്തിയായിട്ടുണ്ട് ചടങ്ങിൽ മന്ത്രി കെ

ചന്ദ്രശേഖരൻ പി ക രുണാകരൻ എംപി എന്നിവരും ജില്ലയിലെ ജനപ്രതിനിധികളും ചട ങ്ങിൽ പങ്കെടുക്കും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെതിരായ പൊലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ ബിജെപി കോർ കമ്മറ്റി യോഗം തീരുമാനിച്ചു ഇന്ന് കോഴിക്കോട്ടും തൃശൂരും പൊലീസ് കമ്മീഷണർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള കൊച്ചിയിൽ അറിയിച്ചു സുരേന്ദ്രന്റെ അറസ്റ്റിനെതിരെ ആവശ്യമെങ്കിൽ സൂപ്രീം കോടതിയെ സമീപിക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു

പൊലീസിനെ ഭീഷ ണിപ്പെടുത്തിയെന്ന കേസിൽ അദ്ദേഹത്തെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോട തിയിൽ ഹാജരാക്കാൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു സുരേന്ദ്രൻ നൽകിയ ജാമ്യ ചികിത്സാ അപേക്ഷകളും പൊലീസിന്റെ അപേ ക്ഷയും ഇന്ന് റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണി ക്കും പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ആനുപാതിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി ജി സുധാകരൻ കുറ്റപ്പെടുത്തി അതേസമയം വിദേശ സഹായം ലഭിക്കുന്നതിന് കേന്ദ്രം തടസം നിൽക്കുകയാണെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ പറ ഞ്ഞു ഗുജറാത്തിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ വിദേശ സഹായം സ്വീകരിച്ചിരുന്നതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു വയനാട് ജില്ലയിലെ വിവിധ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തികൾക്ക് മന്ത്രി തുടക്കം കുറിച്ചു താമരശ്ശേരി ചുരത്തിന്റെ അറ്റകുറ്റപണി ഒരു മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു

ശബരിമല നിയന്ത്രണങ്ങളിൽ ഇളവു വരുത്തിയതോടെ ദർശന ത്തിനായി കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിത്തുടങ്ങി

എരുമേല്വി ക്ഷേത്രത്തിലും കണമല വരെ പ്രദേശങ്ങളിലുമായിരുന്നു ശബരിമല പ്രതിഷേധങ്ങളെ തുടർന്ന് ഒരാ ഴ്ച്ചത്തെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നത് ഇന്നലെ മുതൽ എരുമേലിയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങി എരുമേലി പേട്ട തുള്ളലിന് മുന്നോടിയായി അമ്പലപ്പുഴ സംഘ ത്തിന്റെ ആഴിപൂജ ഇന്ന് തുടങ്ങും വിവിധ ക്ഷേത്രങ്ങളിലും വീടുക ളിലുമായി പതിനെട്ട് ആഴിപൂജകൾ നടത്തിയതിന് ശേഷമാണ് അമ്പ ലപ്പുഴ അയ്യപ്പ ഭക്തസംഘം ശബരിമലയ്ക്ക് പോകുന്നത് കനത്ത മഴയുടെ സാഹചര്യത്തിൽ തീർത്ഥാടകർ പമ്പയിൽ കുളി ക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി

ജലനിരപ്പ് ഉയരുന്നതിനാൽ തീർത്ഥാടകർ വേഗം കുളിച്ചു കയറണമെന്ന് പൊലീസ് ആവശ്യപ്പെ ട്ടു പമ്പ മുതൽ ശബരിമല സന്നിധാനം വരെ കാനന പാതയിൽ പതിനഞ്ച് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ ആരോഗ്യ വകുപ്പ് ക്രമീകരിച്ചു

വയലിനിസ്റ്റ് ബാലബാസ്ക്കറും മകളും വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിൽ വിശദമായ അനേഷണം നടത്താൻ സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അന്വേഷണ സംഘത്തിന് നിർദേശം നൽകി മരണത്തിൽ സംശയം ഉന്നയിച്ച് ബാലബാസ്ക്കറിന്റെ പിതാവും ബന്ധുക്കളും മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകി യിരുന്നു

രാത്രി എട്ടിനും ഇതിന്റെ പുനസംപ്രേഷണം കേൾക്കാം ദേശീയ പ്രാധാന്യമേറിയ നിരവധി വിഷയങ്ങളിൽ കഴിഞ്ഞ മൻ കി ബാത് പരിപാടികളിൽ പ്രധാനമന്ത്രി ജനങ്ങളുമായി സംവദിച്ചിരു ന്നു ന്യൂഡൽഹിയിൽ വനിതകളുടെ ലോക ബോക്സിങ് ചാംപ്യൻഷിപ്പ് ഫൈനൽ ഇന്ന്

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനോട് പരാജയപ്പെട്ടു ഗോഹട്ടിയിൽ ഇഞ്ചുറി സമയത്ത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റിന്റെ വിജയം ഇന്ന് വൈകീട്ട് ഏഴരയ്ക്ക് മുംബൈസിറ്റി എടികെയെ മുംബൈയിൽ നേരിടും

അന്തർ സർവകലാശാല മീറ്റിൽ ആദ്യമായി ഇത്തവണ പ്രൈസ് മണി ഏർപ്പെടുത്തിയിട്ടുണ്ട്

കാഴ്ച്ചാ വൈകലൃം നേരിടുന്നവരുടെ ഇൻഡസ് ഇൻഡ് ബാങ്ക് നാഗേഷ് ക്രിക്കറ്റ് ടൂർണമെന്റ് നാളെ ബെങ്കലൂരുവിൽ ആരംഭിക്കും

മുസ്തീം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മറ്റിയുടെ യുവജന യാത്ര ഇന്ന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കും സംസ്ഥാന് പ്രസിഡന്റ് മുന വറലി ശിഹാബ് തങ്ങൾ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി പി

ഫി റോസ് വൈസ് ക്യാപ്റ്റനുമായ ജാഥ വൈകീട്ട് മുസ്തീം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വർഗീയ മുക്തഭാരതം അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യ ത്തോടെയാണ് യുവജന യാത്ര സംഘടിപ്പിക്കുന്നത് കുരുമുളക് സംരക്ഷണം ലക്ഷ്യമിട്ട് കണ്ണൂരിൽ ആരംഭിക്കുന്ന കുരുമുളക് ഉൽപ്പാദന കമ്പനി ഇന്ന് മന്ത്രി വി

സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്യും കൃഷിവകുപ്പും കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രവും നബാർഡും ചെറുതാഴം പഞ്ചായത്തും ചേർന്നാണ് കുരു മുളക് ഉൽപ്പാദന കമ്പനി രൂപീകരിച്ചത് കണ്ണൂരിൽ സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ മത്സര ഇനങ്ങൾ ഇന്ന് ആരംഭിക്കും അഞ്ച് വിഭാഗങ്ങളിലായി അയ്യായിരത്തോളം പ്രതിഭകളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്

രണ്ടാം സ്ഥാനം എറണാകുളം ഉപജില്ലക്കാണ് ഹയർസെക്കൻഡറി വിഭാഗത്തിൽ നോർത്ത പറവൂരും എറണാകുളം ഉപജില്ലയും ഒന്നാം സ്ഥാനം പങ്കിട്ടു മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തളി ക്ഷേത്ര സമരത്തിന്റെ ഒരു വർഷം നീളുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ നാളെ തുടങ്ങും

കണ്ണൂർ ജില്ലയിലെ കരിപ്പാൽ തറവാട് ധർമ്മദൈവ സ്ഥാനത്തെ കളിയാട്ടം ഇന്ന് ആരംഭിക്കും വൈകുന്നേരം മതസൌഹാർദ്ദ സദസ്സ് മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർക്ക് പരിശ്വീലനം നൽകാനും ക്ലാസുകൾ സംഘടിപ്പിക്കാനുമായി കണ്ണൂരിൽ നിർമ്മിക്കുന്ന പരിശീ ലന കേന്ദ്രത്തിന് ഇന്ന് ഉച്ചക്ക് മന്ത്രി കെ രാജു തറക്കല്ലിടും ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലാണ് പരിശീലന കേന്ദ്രം നിർമ്മിക്കുന്നത് കണ്ണൂർ ചിൻമയ മിഷനിലെ സ്വാമിനി അപൂർവാനന്ദ സരസ്വതി തിരുവനന്തപുരത്ത് സമാധിയായി

രണ്ട് മാസത്തോളമായി തിരുവനന്തപൂരത്തെ സ്ഥകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു